ശബരിമലയുമായി ബന്ധപ്പെട്ട പുനപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതിയിൽ ശുദ്ധിക്രിയയിൽ തന്ത്രിയുടെ വിശ ദീകരണം തിരുവിതാംകൂർ ിദേവസ്ഥം ബോർഡ് ഇന്ന് ചർച്ച ചെയ്യും

സെമി ഫൈനലിൽ കേരളാ പൊലീസ് സിആർപിഎഫിനെ നേരിടും കോൺഗ്രസിന്റെ ജനമഹായാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു ൾ ൽ ൾ കൊൽക്കത്ത പൊലീസിനും പശ്ചിമ ബംഗാൾ ഗവൺമെന്റിനും എതിരെ സിബിഐ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ശാരദാ ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ബംഗാൾ ഗവൺമെന്റും പൊലീസും നശിപ്പിക്കാൻ സാധ്യതയു ണ്ടെന്നും സുപ്രീം കോടതി വിധിയും നിർദേശങ്ങളും പശ്ചിമ ബംഗാൾ ലംഘിച്ചുവെന്നും ആരോപിക്കുന്ന രണ്ട് പരാതികളാണ് സിബിഐ സമർപ്പിച്ചത് തെളിവുകൾ ഗവൺമെന്റോ പൊലീസോ നശിപ്പിച്ചുവെങ്കിൽ അതിന്റെ തെളിവ് ഇന്ന് ഹാജരാക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ സിബിഐ നടപടിക്കെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്ന ധർണ മൂന്നാം ദിവസത്തേക്ക് കടന്നു ഞായ റാഴ്ച്ച രാത്രിയാണ് കൊൽക്കത്തയിലെ താൽക്കാലിക പന്തലിൽ അവർ ധർണയാരംഭിച്ചത്

ഇന്നലെ പാർലമെന്റിൽ പ്രതി പക്ഷ പാർട്ടികൾ ഈ പ്രശ്നം ഉന്നയിച്ച് പലവട്ടം സഭാ നടപടികൾ തടസപ്പെടുത്തി തൃണമൂൽ പ്രവർത്തകർ ് പശ്ചിമ ബംഗാളിൽ പ്രധാ നമന്ത്രിയുടേയും ബിജെപി അധ്യക്ഷന്റേയും കോലങ്ങൾ കത്തിക്കു കയും ട്രെയിനുകൾ തടയുകയും ചെയ്തു സിബിഐ നടപടിക്കെ തിരെ സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും അതേസമയം അഴിമതിക്കാരുടെ സഖ്യമാണ് മമതാ ബാനർജിയെ പിന്തുണക്കുന്നതെന്ന് ബിജെപി കുറ്റപ്പെടുത്തി

പശ്ചിമ ബംഗാളിലെ സംഭവ വികാസങ്ങളിൽ ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറി സിബിഐ യെ രാഷ്ട്രീയ ആയുധമാക്കുന്ന കേന്ദ്ര നീക്കം ജനാധിപതൃ സമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് മുസ്തീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

മജീദ് ആവശ്യപ്പെട്ടു മമത ബാനർജിക്കെതിരെ ബിജെപിക്കൊപ്പം കൈകോർത്ത സിപിഐഎം നിലപാട് ഇരുകൂട്ടരുടേയും അന്തർധാര വെളിപ്പെടുത്തുന്നതാണെന്നും കെ

മജീദ് കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട പുനപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും

ശബരിമലയിലെ ശുദ്ധിക്രിയയുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ വിശ ദീകരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചർച്ച ചെയ്യും സുപ്രീം കോടതി വിധിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും യുവതീ പ്രവേശനത്തിന്റെ പേരിലല്ല ആചാര പ്രകാരമാണ് ശുദ്ധി ക്രിയ നടത്തിയതെന്നും തന്ത്രി വിശദീകരണത്തിൽ വൃക്തമാക്കിയിരു ന്നു ക്ഷേത്രമോ പരിസരമോ അശുദ്ധമായെന്ന് കുണ്ടാൽ പരിഹാര ക്രിയ നടത്തേണ്ടത് തന്ത്രിയുടെ ബാധ്യതയാണെന്നും വിശദീകരണ ത്തിൽ പറയുന്നു ദേവസ്വം ബോർഡ് നൽകിയ നോട്ടീസിന് നിയമ പരമായി നിലനിൽപ്പില്ലെന്നും തന്ത്രി അറിയിച്ചു ബാങ്ക് തട്ടിപ്പ് നടത്തി ബ്രിട്ടണിലെത്തിയ മദ്യ വ്യവസായി വിജയ് മല്യയെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ ബ്രിട്ടീഷ് അധികൃതർ തീരു മാനിച്ചു തീരുമാനത്തെ സ്ഥാഗതം ചെയ്ത ഇന്ത്യ ഇതിന്റെ നിയമ നട പടികൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് വിശ്വാസം പ്രകടിപ്പി ച്ചു ബ്രിട്ടൺ ഹോം സെക്രട്ടറി സാജിദ് ജാവിദ് ഞായറാഴ്ച്ച ഉത്തര വിൽ ഒപ്പിട്ടു

മലൃയെ തിരികെ എത്തിക്കുന്നതിലൂടെ മോദി ഗവൺമെന്റ് ഒരു വാഗ്ദാനം കൂടി പാലിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റലി പ്രതികരിച്ചു

യന്ത്രത്തിൽ പോരാ യ്മകൾ ഇല്ലെന്ന് പാർട്ടികളെ ബോധ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക അവതരണം നടത്തിയിരുന്നു

കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജും നിതിൻ ഗഡ്കരിയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു

എല്ലാ സമുദായങ്ങളും അവരുടെ സംഘടനകളും നേതാക്കളും സിപിഐഎമ്മിനോട് വിധേയത്വം പാലിക്കണമെന്ന ധാർഷ്ഠ്യമാണ് പാർട്ടി സെക്രട്ടറിയുടേയും മുഖ്യമന്ത്രിയുടേയും എൻഎസ്എസ് വിരുദ്ധ പരാമർശമെന്ന് കെപിസിസി വർക്കിങ്ങ് പ്രസിഡന്റ് കൊടി ക്കുന്നിൽ സുരേഷ് പറഞ്ഞു സിപിഐഎമ്മിന്റെ ആജ്ഞാനവർത്തി യായി നിൽക്കാൻ എൻഎസ്എസിനെ കിട്ടില്ലെന്ന് ബോധമായപ്പോ ഴാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണമെന്നും കൊടിക്കു ന്നിൽ പ്രസ്താവനയിൽ പറഞ്ഞു

മല്ലിക്ക് ദേശീയ പൊലീസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം ആദ്യ സെമിയിൽ വൈകീട്ട് അഞ്ചിന് മലപ്പുറം കോട്ടപ്പടിയിൽ നിലവിൽ ചാമ്പ്യൻമാ രായ ബിഎസ്എഫ് രണ്ടാം സ്ഥാനക്കാരായ പഞ്ചാബിനെ നേരിടും രണ്ടാം സെമിയിൽ വൈകീട്ട് ഏഴരക്ക് കേരള പൊലീസ് സിആർപി എഫിനെ നേരിടും

വൈകീട്ട് ഏഴിനാണ് മത്സരം ഇന്നലത്തെ കളിയിൽ ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സ് അഹമദാബാദ് ഡിഫ ന്റേഴ്സിനെ പരാജയപ്പെടുത്തി ഐഎസ്എല്ലിൽ ഡൽഹി ഡൈനാമോസ് എഫ്സി ഗോവ മത്സരം സമനിലയിൽ പിരിഞ്ഞു ഡൽഹിയിൽ കളിയുടെ നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോളടിക്കാൻ കഴിഞ്ഞില്ല

സി സി പ്രസിഡൻറ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടങ്ങി

അന്ധമായ കോൺഗ്രസ് വിരോധത്തിൽ ബിജെപിയെ കേരളത്തിൽ വളരാൻ സിപിഐഎ സഹായിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജനമഹായാത്ര ഇന്ന് ഇരിക്കൂർ പേരാവൂർ മട്ടന്നൂർ ധർമ്മടം അഴീക്കോട് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും കോഴിക്കോട് കൊടുവള്ളി ടൌണിലെ സിറാജ് ഫ്ളൈ ഓവർ സർവീസ് റോഡ് ഒഴിവാക്കി നിർമ്മിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു കൊടുവള്ളി മഹല്ല് പള്ളി ഭാഗത്ത് കൂടി കടന്നുപോകുന്ന സർവീസ് റോഡ് ഒഴിവാക്കാനാണ് തീരുമാനം

ലോക്സഭയിൽ പി

ശ്രീമതി എംപിയുടെ ചോദ്യ ത്തിന് മറുപടിയായി കേന്ദ്രസഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനമാണ് ഇക്കാര്യം അറിയിച്ചത് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എട്ട് നദികളെ ബന്ധിപ്പിച്ചാണ് റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി

പരിഷത്ത് ഞായറാഴ്ച്ച സമാപിക്കും

ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും എല്ലാ യോഗങ്ങളിലും സ്ത്രീകൾക്ക് കൂടി പങ്കെ ടുക്കാവുന്ന രീതിയിൽ സമയം പുനക്രമീകരിച്ചു നടക്കുന്ന ആദ്യ മാരാമൺ കൺവെൻഷനാണ് ഇത്തവണത്തേത്

എന്നാൽ ഇപ്പോൾ തങ്ങൾക്കെതിരെ കേസു കൾ നിലവിലില്ലെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചാണ് ട്രിബ്യൂ ണൽ നടപടി തെരുവ് ബാലൃ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകൂപ്പ് നടപ്പാക്കുന്ന ശരണബാലൃം പദ്ധതിക്ക് പാല ക്കാട് ജില്ലയിൽ തുടക്കമായി ഇന്നലെ പരിശോധനയിൽ പാലക്കാട് റെയിൽവെ സ്റ്റേഷനിൽ കണ്ടെത്തിയ കുട്ടിയെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ആഴ്ച്ചയിൽ മൂന്ന് തവണ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ അധകൃതർ തീരുമാനിച്ചിട്ടുണ്ട് ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദൻ സാമൂഹ്യ മാധ്യമത്തിൽ ശബരിമല അയ്യപ്പനെതിരെ സഭ്യേതര പരാമർശം നടത്തി മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകി

പ്രിയനന്ദനെതിരെ വിവിധ പൊലീസ് സ്റ്റേഷനുകളിൽ നൽകിയ പരാതികളിൽ എഫ്ഐആർ പോലും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആലപ്പുഴ സ്വദേശി കെ

അഭിജിത്ത് അറിയിച്ചു ഭിന്നശേഷിക്കാർക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറി റ്റിയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണവും പ്രഥമ ശുശ്രൂഷയും എന്ന വിഷയത്തിൽ നാലു ദിവസത്തെ പരിശീലനത്തിന് ഇന്ന് പത്ത നംതിട്ടയിൽ തുടക്കമാകും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഇന്റർ യൂനിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസെബിലിറ്റി സ്റ്റഡീസ് ആണ് പരിശീലനം നൽകുന്നത് കൊല്ലം വേളാങ്കണ്ണി പ്രത്യേക റെയിൽ സർവീസ് ആരംഭിച്ചു

ആഴ്ച്ചയിൽ മൂന്ന് തവണ ട്രെയിൻ ഓടിക്കണമെന്നാവശ്യപ്പെട്ട് എൻ